കേരളത്തിൽ നിന്നുള്ള രണ്ട് അധ്യാപകരും അവാർഡുകൾ കൊല്ലം ചവറ തെക്കുംഭാഗം സർക്കാർ സ്വീകരിച്ചു

വി

സ്കൂളിലെ പ്രധാന അധ്യാപികയായ തങ്കലത തങ്കപ്പൻ ആലപ്പുഴ ചെന്നിത്തുല ജവഹർ നവോദയ വിദ്യാലയയിലെ അധ്യാപകനായ പ്രസ്ജികുമാർ വി

ഉപരാഷ്ട്രപതി എം വെങ്കയ്യ ന്റ്യീഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അധ്യാപക സമൂഹത്തിന് ആശംസകൾ നേർന്നു

ഈ മാസം എട്ടു വരെ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാം